രാജി അംഗീകരിക്കണമെന്ന കർണാടകയിലെ വിമത എം എൽ

വെള്ളത്തിൽ മുങ്ങ്ി ബിഹാറും അസമും ദുരിതാശ്വാസ്കപ്പിവർത്തനം ഊർജ്ജിതം

ഇന്ത്യൻ യാത്ര വിമാനങ്ങൾക്ക് വ്യോമ മേഖലയിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണം പാക്കിസ്ഥാൻ നീക്കി

കേരള പുനർനിർമാണത്തിന് ഉന്നതനിലവാരത്തിലുള്ള സാങ്കേതിക സഹായം നൽകാമെന്ന് ലോക ബാങ്ക്

എൽ എമാർ നൽകിയ ഹരജിയും വിമതർക്കെതിരെ സ്പീക്കർ സമർപ്പിച്ച ഹർജിയും കോടതി പരിഗണിക്കുകയാണ് വിമത എം എൽ എമാർക്ക് വേണ്ടി പ്രമുഖ അഭിഭാഷകൻ മുകുൾ റോത്തകിയാണ് വാദം തുടങ്ങിയത് സ്പീക്കറുടെ അധികാര പരിധി ഉൾപ്പെടെ കർണാടക പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട ഭരണഘടന് വിഷയങ്ങളും കോടതിയുടെ പരിഗണനയിലുണ്ട് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗഗോയ് അധ്യക്ഷനായ ബഞ്ചാണ് കേസ് പരിഗണിക്കുന്നത് ആദ്യം പത്ത് എം എൽ

ഐ

ദേശീയ അന്വേഷണ ഏജൻസി അറസ്റ്റ് രേഖപ്പെടുത്തി പൂനമല്ലി എൻ ഐ എ കോടതിയിലെ പ്രത്യേക ജഡ്ജി സെന്തുർ പാണ്ഡ്യൻ മുമ്പാകെ ഹാജരാക്കുകയായിരുന്നു തമിഴ്നാട് സ്വദേശീകളായ ഇവർ വിവിധ ഇടങ്ങളിൽ സ്ഫോടനങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിന് അൻസാറുള്ള എന്ന സംഘനടയ്ക്ക് വേണ്ടി സൌദിയിൽ പണം ശേഖരിച്ചിരുന്നു ചെന്നൈ നാഗപ്പട്ടണം എന്നിവിടങ്ങളിലെ ഇവരുടെ കേന്ദ്രങ്ങളിൽ എൻഐ പരിശോധന നടത്തി

തലയ്ക്ക് ഒരു ലക്ഷം രൂപാ വിലയിട്ടിരുന്ന രോഹിത് രാകേഷ് എന്നിവരെയാണ് ഏറ്റുമുട്ടലിലൂടെ കൊലപ്പെടുത്തിയതെന്ന് മീററ്റ് ഏഡിജിപി അറിയിച്ചു കൊലപാതകം കവർച്ച തുടങ്ങി നിരവധി കേസുകളിൽ പ്രതികളാണ് കൊല്ലപ്പെട്ടവർ

ഡൽഹി പോലീസിന്റെ പ്രത്യേക വിഭാഗമാണ് ബഷീർ അഹമ്മദ് എന്ന ശ്രീനഗർ സ്വദേശിയെ അറസ്റ്റ് ചെയ്തത് ഇയാളെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് പോലീസ് രണ്ട് ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നു

ഇവയടക്കം നിരവധി സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം ജാഗ്രതാ നിർദ്ദേശം നൽകി

തൂട്ർച്ച്ചയായി പെയ്യുന്ന കനത്ത മഴയിലും പല പ്രദേശങ്ങളും ഒറ്റ്പ്പെട്ടിരിക്കുകയാണ്

കാസിരംഗ നാഷണൽ പാർക്കിലെ ഭൂരിഭാഗം മേഖലയും വെള്ളപ്പൊക്കത്തിലായതോടെ മൃഗങ്ങൾ ഉയർന്ന പ്രദേശത്തേക്ക് നീങ്ങാൻ തുടങ്ങി മുഖ്യമന്ത്രി സർബാനന്ദ സോണോവാൾ ദുരിത മേഖലകളിൽ സന്ദർശനം നടത്തി

ആവശ്യമായ എല്ലാ മുൻകരുതലും എടുക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി അസം മുഖ്യമന്ത്രിയോട് നിർദ്ദേശിച്ചു സംസ്ഥാനത്തിന് എല്ലാ സഹായങ്ങളും കേന്ദ്ര ഗവൺമെന്റ് വാഗ്ദാനം ചെയ്തു

മിസോറാം മേഘാലയ അരുണാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലും കനത്ത മഴ തുടരുകയാണ്

ദുരന്ത മേഖലകളിൽ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ആകാശ നിരീക്ഷണം നടത്തി

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ദുരന്ത ബാധിത രാജ്യങ്ങൾക്ക് എല്ലാ സഛ്യായവും നൽകുമെന്ന് യു

സമൂഹത്തെ രൂപപ്പെടുത്തുന്നതിൽ ഗുരുനാഥൻമാർക്കുള്ള പങ്ക് നിസ്തുലമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ഹിന്ദു വിശ്വാസപ്രകാരം അധ്യാപകരെയും ഗുരുനാഥൻമാരെയും ആദരിക്കാനുള്ള ദിനമാണ് ഗുരു പൂർണ്ണിമ

ബാലാക്കോട്ട് ആക്രമണത്തിന് പിന്നാലെ വ്യോമമേഖല ഉപയോഗിക്കുന്നതിൽ ഇന്ത്യൻ വിമാനങ്ങൾക്കുള്ള വിലക്കാണ് നീക്കിയത്

പാർലമെന്റിന്റെ ലൈബ്രറി ഹാളിൽ ചേർന്ന യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്ര മോദി ആഭ്യന്തര മന്ത്രി അമിത്ഷാ എന്നിവർ അടക്കമുള്ള നേതാക്കൾ പങ്കെടുക്കുന്നുണ്ട്

ബിജെപി നേതാവ് രാജീവ് ബബ്ബാർ നൽകിയ കേസിൽ ശ്രീ ്കെജ്രിവാൾ കോടതിയിൽ നേരിട്ട് ഹാജരായാണ് ജാമ്യം നേടിയത്

തൃണമൂൽ കോൺഗ്രസ് എം പി സതാബ്ദി റോയ് സസ്പെൻഷനിരിക്കുന്ന പാർട്ടി നേതാവ് കുനൽഘോഷ് തട്ടിപ്പിലെ മുഖ്യപ്രതിയുടെ ബന്ധുവായ അരിന്ദം ദാസ് രണ്ട് വ്യാപാരികൾ ഈസ്റ്റ് ബംഗാൾ ഫുട്ബോൾ ക്ലബ് ഉദ്യോഗസ്ഥൻ എന്നിവരെയാണ് ചോദ്യം ചെയ്യുന്നത്

വോയ്സ് വംശനാശത്തിന്റെ വക്കിൽ നിൽക്കുന്ന ഈ പക്ഷി വർഗ്ഗങ്ങളുടെ സംരക്ഷണത്തിനായി സ്വീകരിച്ച നടപടികൾ വിശദമാക്കാൻ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻ്റുകളോട് സുപ്രീം കോടതി നിർദ്ദേശിച്ചു

പറക്കാൻ കഴിയുന്നവയിൽ ഏറ്റവും ഭാരം ്കൂടിയ പക്ഷിയായ ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡിനെ ഇറച്ചിയ്ക്ക് വ്യേണ്ടിയാണ് വേട്ടയാടു ന്നത്

ലെസ്സർ ഫ്ളോറിക്കൻ എന്നു ചാട്ടക്കോഴി ചതുപ്പ് നിലങ്ങളിലും കുറ്റിക്കാടുകളിലുമാണ് അധികം കഴിയുന്നത് ഗുജറാത്ത് രാജസ്ഥാൻ മഹാരാഷ്ട്ര ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളി ലാണ് പൊതുവെ കാണാറുള്ളത്

ന്യൂസ് ഡെസ്ക് ആകാശവാണി

മയക്കുമരുന്ന് വ്യാപാരം തടയാൻ നടത്തുന്ന ശ്രമങ്ങളാണ് ആക്രമണത്തിന് പിന്നിൽ രാജ്യത്തെ തകർത്ത് മയക്ക്മരുന്ന് വ്യാപാരം സുഗമമാക്കാനാണ് ലോബികളുടെ ശ്രമം എന്നാൽ മയക്കു മരുന്നിനെതിരായ പോരാട്ടത്തിൽ നിന്നും തന്നെ പിന്തിരിപ്പിക്കാനാകില്ലെന്നും സിരിസേന പറഞ്ഞു

കാലാവസ്ഥാ വ്യതിയാനം ദുരന്ത സാധ്യതകൾ എന്നിവ പ്രതിരോധിക്കുന്നത് സംബന്ധിച്ച് ആവിഷ്കരിക്കുന്ന പദ്ധതികളുടെ ഭാഗമായി ഇന്ത്യയിൽ കേരളത്തിനാണ് ആദ്യമായി ലോകബാങ്ക് സഹായം ലഭ്യമാക്കുന്നത് സംസ്ഥാന ബജറ്റിൽ വകയിരുത്തുന്ന നേരിട്ട് ധനസഹായത്തിന് കേന്ദ്രവും ലോക്രബാങ്കും നേരത്തെ അനുമതി നൽകിയിരുന്നു

ടീം ഇനത്തിൽ ലോക റെക്കോർഡോടെയാണ് ഇന്ത്യയുടെ മറ്റൊരു സ്വർണ്ണനേട്ടം